ആദിവാസി സമൂഹത്തിന്റെ പങ്ക് ന്ടിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ ക്ലീ ബാത്തിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ധീയുടെ ജപ്പാൻ സന്ദർശനം തുടരുന്നു

പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം മറ്റെന്നാൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവ്വഹിക്കും

എറണാകുളം ജില്ല മേള ഇന്ന് സമാപിക്കും

ഫൈനലിൽ ഇന്ത്യ ഇന്ന് പാക്കിസ്ഥാനെ നേരിടും ട്ടടട്ട ടടടടട മൻ കി ബാത്ത് രാജ്യത്തെ ഐക്യത്തിന്റെ നൂലിൽ കോർക്കുക എന്ന അസാ ധ്യമായ കാര്യം പൂർത്തീകരിച്ച് ഇന്ന് നാം കാണുന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് സർദാർ വല്ലഭായി പട്ടേലിന്റെ തന്ത്രപര മായ നൈപുണ്യമാണ് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോ ദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ജന ങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിൽ എല്ലാ ഭാരതീയനും അഭിമാനിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു

ജപ്പാനിലെ വ്യാവസായിക നഗരമായ യമാനഷീയിലെ റോബോട്ടിക്സ് ആന്റ് ഓട്ടോമേഷൻ എന്ന സ്ഥാപനം പ്രധാനമന്ത്രി സന്ദർശിച്ചു ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബേയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നാളെ നടക്കുന്ന പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും വാണിജ്യമേഖലയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ജപ്പാനിലെ വ്യവസായ പ്രമുഖർക്ക് മുന്നിൽ ഇന്ത്യയിലെ ആകർഷകമായ നിക്ഷേപ സാധ്യതകൾ പ്രധാനമന്ത്രി വിവരിക്കും ടോക്കിയോയിൽ നടക്കുന്ന മേക് ഇൻ ഇന്ത്യ പരിപാടി ശ്രീ മോദി അഭിസംബോധന ചെയ്യും നാളെ ജപ്പാനിലെ ഇന്ത്യൻ വംശജർ ഒരുക്കുന്ന സ്വീകരണ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടന്നും ്നിർവ്വഹിക്കുന്ന അദ്ദേഹം പാലക്കാട് ജില്ലയിലെ താണ്ടാവ് റോഡ് കാസർഗോഡ് പള്ളി ക്കര റെയിൽവെ ഓവർബ്ബിഡ്ജ് എന്നിവയുടെ നിർമ്മാണോ ദ്ഘാടനം വീഡിയോ ്ക്കാ്ൺഫറൻസിലൂടെ നിർവ്വഹിക്കും

കൊച്ചി സിറ്റി പോലീസ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എറണാകു ളത്ത് പത്രസമ്മേളത്തിനിടെ നടത്തിയ വിവാദ പരാമർശ ത്തിന്റെ പേരിലാണ് നടപടി

മണ്ഡലകാലം കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവ്വീസ് സ്കാനിയ ബസുകൾ വാടകയ്ക്ക് നൽകിയ മഹാരാഷ്ട്ര യിലെ മഹാവോയജ് എന്ന കമ്പനിയാണ് ഇ ടെൻഡർ വഴി വാടകക്കരാർ നേടിയത് വൈദ്യുതി കണ്ടക്ടർ എന്നിവ കെ എസ് ആർ ടി സി വഹിക്കും

നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ഭാവി കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നതാണ് മുഖ്യ വിഷയം

കൊച്ചിയിൽ കുഫോസിന്റെ പ്രധാന കാമ്പസ്സിൽ നടക്കുന്ന ബി രുദദാന ചടങ്ങിൽ ഗവർണർ പി

ചടങ്ങിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അദ്ധ്യക്ഷത വഹിക്കും

പ്രളയ ദുർണ്ണ്ട്ത്തിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി മലയാളികളെ ബിസ്സിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത ഭൂമി മലയാളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിജ്ഞയെടുക്കുന്നത് പ്ര ട്ടടടട സംസ്ഥാന സ്കൂൾ കായികമേള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മൂന്നാം ദിനത്തിൽ മത്സ രങ്ങൾ പുരോഗമിക്കുമ്പോൾ എറണാകുളം ജില്ല മുന്നേറ്റം തുട രുന്നു

കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ചന്തു എസ് നായർ ചേരുന്നു

മലേഷ്യയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെ തോൽപ്പിച്ചാണ് പാക്കിസ്ഥാൻ ഫൈനലിൽ കടന്നത്

ഏ അക്കൌണ്ടിൽ നിന്ന് ഒരു ദിവസം എ

എം ലൂടെ പിൻവലിക്കാവുന്ന തുക കുറച്ചുകൊണ്ടുള്ള ് എസ് ബി ഐ യുടെ തീരുമാനം ബുധനാഴ്ച പ്രാബലൃത്തിൽ വരും

ബി ഐ

കൂടുതൽ തുക പിൻവലിക്കേണ്ടവർ മറ്റ് ഡെബിറ്റ് കാർഡ് വേരിയന്റുകൾക്ക് അപേക്ഷ നൽകണം

ബി ഐ ഗോൾഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡുകളുടെ പിൻവലിക്കൽ പരിധിക്ക് മാറ്റം വരുത്തിയിട്ടില്ല

മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ വിപിധ പദ്ധതികൾ ഉദ്ഘാടനംചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

സിബിഐ അന്വേഷിക്കുന്ന ലാവ്ലിൻ കേസ് ഉപയോഗിച്ചാണ് ബിജെപിയും കേന്ദ്രഗവൺമെന്റും പിണറായിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി